ക്കാർ സുരക്ഷിതരാണെന്ന് വിദേശകാര്യ സഹമന്ത്രി വി

സുരക്ഷ ഉറപ്പുവരുത്താൻ അടിയന്തര നടപടി സ്ഥീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന ങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും മെഡിക്കൽ പ്രവേശനം സംബന്ധിച്ച് സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുക ളുമായി ഗവൺമെന്റ് വൈകിട്ട് ചർച്ച നടത്തും വയനാട് സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ നേത്രരോഗ വിമുക്ത ജില്ലയായി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ആദ്യതോൽവി

കസാക്കിസ്ഥാനിൽ ടെങ്കിസിലെ എണ്ണപ്പാടത്തുണ്ടായ സംഘർഷത്തിൽ ഇന്ത്യ ക്കാർ സുരക്ഷിതരാണെന്ന് വിദേശകാർ്യ സഹമന്ത്രി വി

ആർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടില്ലെന്നും സംഭവം നടക്കുമ്പോൾ ഇന്ത്യക്കാ രായ ചിലർ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ടിറ്ററിൽ അറിയിച്ചു അസ്താ നയിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായും ഇന്ത്യക്കാരുമായും ബന്ധം പുലർത്തുന്നുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു

മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നോർക്ക് അധികൃതർ എംബസിയുമായി ആശയവിനിമയം നടത്തി കുടുങ്ങിക്കിടക്കുന്നവരുടെ വിശദാം ശങ്ങൾ നൽകാൻ അവർ എംബസിയോട് ആവശ്യപ്പെട്ടു ് കസാക്കിസ്ഥാനിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമായ ടെങ്കിസിലെ എണ്ണ പ്പാടത്ത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞാണ് സംഘർഷമുണ്ടായത്

ലെബനനിൽ നിന്നുളള ഒരു തൊഴിലാളി സാമൂഹികമാ ധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയാണ് സംഘർഷത്തിന് കാരണമായത് കസാക്ക് തൊഴിലാളികളെ അപമാനിക്കുന്ന ഫോട്ടോയാണിതെന്ന പ്രചാരണത്തെ തുടർന്ന് വിദേശ തൊഴിലാളികളെ തദ്ദേശീയർ ക്രൂരമായി ആക്രമിക്കുകയായിരു ന്നു സംഘർഷത്തിൽ മുപ്പതോളം പേർക്ക് പരിക്കേറ്റു ഇവരിൽ ഭൂരിഭാഗവും അറബ് വംശജരാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നട ത്തും രാജസ്ഥാൻ മധ്യപ്രദേശ് പഞ്ചാബ് ഛത്തീസ്ഗഡ് പുതുച്ചേരി മുഖ്യമന്ത്രി മാർ ഉച്ച്കഴിഞ്ഞ് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും പാർട്ടി അധ്യക്ഷ സ്ഥാന ത്തുനിന്ന് രാജി പ്രഖ്യാപിച്ചശേഷം ആദ്യമായാണ് രാഹുൽഗാന്ധി ഇത്തരത്തിൽ യോഗം വിളിച്ചുചേർക്കുന്നത് മെഡിക്കൽ പ്രവേശനം സംബന്ധിച്ച് സ്വാശ്രയ മെഡിക്കൽ മാനേ ജ്മെന്റുകളുമായി ഗവൺമെന്റ് ഇന്ന് ചർച്ച നടത്തും മന്ത്രി കെ

പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനും ക്രിസ്ത്യൻ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷനും ചർച്ചയിൽ പങ്കെടുക്കും ബോണ്ട് വ്യവസ്ഥയിൽ പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ചർച്ച നട ത്തുന്നത് ധീവര വിഭാഗങ്ങൾക്ക് അർഹമായ പരിഗണന ഉറപ്പാക്കുമെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

മത്സ്യ ത്തൊഴിലാളികളെ പുനരുദ്ധരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യാൻ ഗവൺമെന്റ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാമൂഹ്യമായ മാറ്റങ്ങൾ ഉണ്ടാ ക്കുന്നതിൽ നിർണ്ണായകമായ പങ്കുവഹിച്ച വൃക്തിയായിരുന്നു പണ്ഡിറ്റ് കറുപ്പനെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു

സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ടി

ജോർജ്ജിനും ഫോട്ടോഗ്രഫി സമഗ്ര സംഭാവന പുരസ്കാരം പി ഡേവിഡിനും സമ്മാനിക്കും ഒരുലക്ഷം രൂപയും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരമാൻ രൂപകല്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം

സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം കോഴിക്കോട് കൂമ്പാറ ഫാത്തിമാബി മെമ്മോറിയൽ ഹൈസ്കൂളിന് ലഭിച്ചു

സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സ്കൂളിന് അഞ്ചുലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് മൂന്നു ലക്ഷം രൂപയും മൂന്നാം സ്ഥാനം നേടിയവർക്ക് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ലഭിക്കും വെള്ളിയാഴ്ച തിരുവനന്തപുരം ടാഗോർ തിയറ്ററിൽ നടക്കുന്ന പ്രൈമറി ഹൈടെക് ലാബ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ മന്ത്രി പിണറായി വിജയൻ അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് കൈറ്റ് വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ കെ അൻവർ സാദത്ത് അറിയിച്ചു

കൊച്ചി സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന ആറു താലൂക്കുകളും കോട്ടയം ജില്ലയുടെ ഭാഗമായി രുന്ന കുന്നത്തുനാട് പറവൂർ താലൂക്കുകളും ചേർത്താണ് തൃശൂർ ജില്ല രൂപീകരി ച്ചത്

ജില്ലയായി കല്പറ്റയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കലക്ടർ എ

അജയകുമാർ പ്രഖ്യാപനം നടത്തി പ്രളയത്തിന് ശേഷം നടന്ന ആരോഗ്യപ്രവർത്തനത്തിന്റെ ഭാഗ മായി നേത്രപരിശോധന ക്യാമ്പ് പൂർത്തിയാക്കിയാണ് ജില്ലയെ നേത്രരോഗ വിമു ന്ന ക്തമായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആരംഭിച്ച സൌജന്യ നേത്ര പരിശോധന ക്യാമ്പാണ് ഇന്നലെ കൽപറ്റയിൽ സമാപിച്ചത്

ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ആദ്യ തോൽവി

വിജയത്തോടെ ഇംഗ്ലണ്ട് സെമി പ്രതീക്ഷ നിലനിർത്തി

ഇന്ത്യയുടെ പരാജയം പാകിസ്ഥാന്റെ സെമി സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചു

ശേഷി ക്കുന്ന രണ്ട് മത്സരങ്ങളിൽ ഒരെണ്ണം ജയിച്ചാൽ ഇന്ത്യക്ക് സെമിയിലെത്താം നാളെ ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം

ചാരണം നടത്തി തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ വിഡ്ഢികളുടെ സ്വർഗ്ഗത്തി ലാണെന്ന് മന്ത്രി ഡോക്ടർ കെ

സി പി ഐ എം നേതൃത്വ ത്തിൽ തിരൂരിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു അദ്ദേഹം

റിയൽ എസ്റ്റേറ്റു കാരുടെ കമ്മീഷൻ മാത്രം ലാക്കാക്കി അവരുടെ താൽപര്യങ്ങൾക്കനുസരിച്ചാണ് യു ഡി എഫ് ആക്ഷേപം ഉന്നയിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കാർട്ടൂൺ വിവാദവുമായി ബന്ധപ്പെട്ട് തെറ്റായ സന്ദേശം നൽകാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് മന്ത്രി എ

ആവിഷ്കാര സ്വാത ന്ത്ര്യത്തിന്റെ കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ ഗവൺമെന്റോ എൽ ഡി എഫോ ആഗ്രഹിക്കുന്നില്ലെന്ന് മന്ത്രി ആലപ്പുഴയിൽ വൃക്തമാക്കി ഏത് അക്കാദ മിയിലും നയപരമായ തീരുമാനം എടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു

ക്കാട് ഡിവിഷന്റെ സമയ പട്ടികയിൽ കൊങ്കൺ റൂട്ടിലെ പുതുക്കിയ മൺസൂൺ സമയക്രമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്

അടിസ്ഥാനമാക്കി പുതിയ സിഗ്നൽ സംവിധാനം നിലവിൽ വന്നു

ട്രെയിൻ ഗതാഗതം കൂടുതൽ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിന് പുതിയ സംവിധാനം സഹായിക്കും

സുന്ദരപണിക്കർ അന്തരിച്ചു

വാർദ്ധക്യസഹ ജമായ അസുഖങ്ങളെതുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം

സംസ്കാരം ഇന്ന് രാവിലെ പത്തിന് ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ നടക്കും ഛത്തീസ്ഗഡിൽ തീവ്രവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച സി ആർ പി എഫ് ജവാൻ ഇടുക്കി കട്ടപ്പന വെള്ളയാംകുടി സ്വദേശി ഒ

സാജുവിന് നാടിന്റെ അന്ത്യാഞ്ജലി കട്ടപ്പനയിലെ പൊതുദർശനത്തിനുശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഭൌതികദേഹം സംസ്കരിച്ചു

കോട്ടയം വെമ്പള്ളിയിൽ ബൈക്കിനു പിറകിൽ മിനിലോറിയിടിച്ച് യുവാവ് മരിച്ചു കുറവിലങ്ങാട് സ്വദേശി റോണി ജോസാണ് മരിച്ചത് വടകര മാഹി കനാലിൽ ഇതര സംസ്ഥാന തൊഴിലാളി മുങ്ങിമരിച്ചു

ട ശക്തമായ തിരമാലയിൽപ്പെട്ട് തകർന്ന ഫൈബർ ബോട്ട് പരപ്പനങ്ങാടി ആലുങ്ങൽ കടപ്പുറത്തടിഞ്ഞു

ബോട്ടി ലുണ്ടായിരുന്ന അഞ്ച് മത്സ്യത്തൊഴിലാളികളെയും മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തിയിരുന്നു

അപകട ത്തിന്റെ സാഹചര്യത്തിൽ മംഗലൂരു വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു

ചർച്ച നടത്തുമെന്ന് ജനതാദൾ സംസ്ഥാന പ്രസീഡന്റ് സി

കാലഘട്ടം ആവശ്യപ്പെടുന്നത് അതാണെന്നും ഒന്നിച്ച് മുന്നോട്ട് പോവു കയാണ് വേണ്ടതെന്നും അദ്ദേഹം വടകരയിൽ പറഞ്ഞു

ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധിയുണ്ടായേക്കും മുംബൈയിലെ ദിൻദോഷി സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്

് ് ് ് ് ് ് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നഗരസഭാ കൌൺസിലർ കോഴി ശ്ശേരി മജീദിനെ കൊടിസുനി ഫോണിൽ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ കൊടുവള്ളി പൊലീസ് കേസെടുത്തു

നേരത്തെ മജീദിനും കൂടുംബത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് കൊടുവള്ളി നഗരസഭാ പ്രമേയം പാസാക്കിയിരുന്നു